പോളിംഗ് സാമഗ്രികളുടെ വിത്ര്ണം നാളെ രാവിലെ ആരംഭിക്കും സുരക്ഷാ ്ക്മീകരണങ്ങൾ ശക്തമാക്കി

ആവേശം പകർന്ന് മുന്നണികൾ

സ്ഥിരീകരിച്ചു

ലോകമെമ്പാടും ക്രൈസ്തവർ ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുന്നു

ഇനി നിശബ്ദ പ്രചാരണം മാത്രം വോട്ടെടുപ്പ് മറ്റെന്നാൾ കേരളം കണ്ടതിൽവച്ച് ഏറ്റവും വീറും വാശിയും ഏറിയ തിരഞ്ഞെടുപ്പിനാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നത് മൂന്ന് മുന്നണികൾക്കും നിർണ്ണായകമായ തിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ അവാസന ഘട്ടത്തിൽ കൂടുതൽ വിവരങ്ങളുമായി മൈത്രി ബി രാജി

വോട്ടർ പട്ടികയിൽ ഇരട്ട വോട്ട് കണ്ടെത്തിയ സാഹചര്യത്തിൽ എല്ലാ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗും ഏർപ്പെടുത്തിയിട്ടുണ്ട്

ഏറ്റവും കുറഞ്ഞ സമയംകൊണ്ട് പരമാവധി ജനങ്ങളിലേക്ക് പ്രചാരണം എത്തിക്കുക എന്ന വെല്ലുവിളിയാണ് സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും മുന്നിലുള്ളത് അതിനാൽ സമൂഹ മാധ്യമങ്ങളെയും മറ്റ് ഡിജിറ്റൽ മാധ്യമങ്ങളെയും ഫലപ്രദമായി ഉപയോഗിക്കുന്ന തിരഞ്ഞെടുപ്പ് കൂടിയാണിത് വോട്ടർമാർക്കും സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയപാർട്ടികൾക്കും പോളിംഗ് ഉദ്യോഗസ്ഥർക്കും ഹരിത പെരുമാറ്റചട്ടം ഏർപ്പെടുത്തിയിട്ടുണ്ട് കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ചാണ് ചൊവ്വാഴ്ച തിരഞ്ഞെടുപ്പ്

വോട്ടെടുപ്പിന്റെ അവസാന മണിക്കൂറിൽ കോവിഡ് ബാധിതർക്കും പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ ഉള്ളവർക്കും ബൂത്തിലെത്തി വോട്ട് ചെയ്യാം ഇവർ നിർബന്ധമായും പി

ഈ സമയം പോളിംഗ് ഉദ്യോഗസ്ഥരും പി

സാധാരണ വോട്ടർമാർക്ക് വോട്ട് ചെയ്യുമ്പോൾ ഉപയോഗിക്കാനുള്ള ഗ്ലൌസ് പോളിംഗ് സ്റ്റേഷനിൽ നിന്ന് നൽകുന്നതാണ്

ഡി എഫ് പ്രവർത്തകർക്ക് ആവേശം പകർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്ത് റോഡ് ഷോയിൽ പങ്കെടുത്തു പെരളശേരിയിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോയിൽ സിനിമാ താരങ്ങളും സാംസ്കാരിക നായകന്മാരും പങ്കെടുത്തു

ഡി എഫ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശം പകർന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നീത്ത്ലിയുടെ റോഡ് ഷോ ജില്ലയിലെ മൂന്ന് മണ്ഡലങ്ങളിൽ പ്പിരുട്ടനം നടത്തിയ ചെന്നിത്തല ഉടുമ്പൻചോല മണ്ഡലത്തിലെ രാജാക്കാട് മുതൽ നെടുങ്കണ്ടെവരെയാണ് രോഡ് ഷോ നടത്തിയത് ദേവികുളം ഉടുമ്പൻചോല ഇടുക്കി മുണ്ഡലങ്ങളിലാണ് ചെന്നിത്തല പര്യടനം നടത്തിയത്

യുടെ പ്രചാരണാർത്ഥം തൃശ്ശൂരിൽ സംഘടിപ്പിച്ച റോഡ് ഷോയ്ക്ക് സുരേഷ്ഗോപി നേതൃത്വം നൽകി നേമം മണ്ഡലത്തിൽ എൻ ഡി

യുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിക്ക് സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ നേതൃത്വം നൽകി ധർമ്മടത്ത് ബി ജെ

സ്ഥാനാർത്ഥി സി

ദേശീയ ജനാധിപത്യ സഖ്യത്തെ ജനങ്ങൾ കൂടുതൽ ആവേശത്തോടെ സ്വീകരിക്കുകയാണെന്ന് സി

പത്മനനാഭൻ പറഞ്ഞു ജില്ലകളിലൂടെ

ഡി എഫ് അനുകൂല ജനവികാരമാണ് കഴിഞ്ഞ അഞ്ച് വർഷകാലത്തെ ഭരണത്തിൽ ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാരിനെതിരെ നുണ പ്രചാരണങ്ങൾ ഉണ്ടായെന്നും എന്നാൽ അതൊന്നും വിലപ്പോയില്ലെന്നും മുഖ്യമന്ത്രി കണ്ണൂരിൽ പറഞ്ഞു

നല്ല കാര്യങ്ങളെ തെറ്റായി ചിത്രീകരിക്കാനും പ്രതിപക്ഷം ശ്രമിച്ചു എന്നാൽ ജനങ്ങൾക്കുവേണ്ടി നല്ലകാര്യങ്ങൾ പറയാൻ പ്രതിപക്ഷത്തിന് സാധിച്ചില്ല അഞ്ച് വർഷത്തിലൊരിക്കൽ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയാൽ പിന്നെ ജനങ്ങൾക്ക് ഭരണത്തിൽ കാര്യമില്ലെന്ന പൊളിച്ചെഴുതാൻ നാരണ സാധിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

ഡി എഫ് സെഞ്ചറി അടിക്കുമെന്ന് കെ

സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കണ്ണൂർ പ്രസ് ക്ലബ്ബിൽ മുഖ്യമന്ത്രി നടത്തിയത് വിടവാങ്ങൽ പ്രസംഗമാണ് അധികാരത്തിൽ നിന്നും രാഷ്ട്രീയത്തിൽ നിന്നും വിടവാങ്ങുന്ന ഒരു പ്രസംഗമായിട്ടാണ് താൻ അത്മിനെ കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു

തെറ്റ് ചെയ്തത് ഇ ഡി അന്വേഷിക്കുമ്പോൾ ഇ ഡിക്കെതിരെ അന്വേഷണം നടത്തുമെന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നതെന്ന് കേന്ദ്ര മന്ത്രി പറഞ്ഞു രാഹുൽ ഗാന്ധി മത തീവ്രവാദ ഗ്രൂപ്പുകൾക്കെതിരെ ഒന്നും പറയുന്നില്ലന്നും നിർമ്മലാ സീതാരാമൻ പറഞ്ഞു

കാബിനറ്റ് സെക്രട്ടറി പ്രിൻസിപ്പൽ സെക്രട്ടറി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു കോവിഡ് രോഗ ബാധിതരുടെ എണ്ണത്തിലെ വർധനയും വാക്സിനേഷൻ പുരോഗമിക്കുന്നതും യോഗത്തിൽ ചർച്ചയായി കോവിഡ് സുരക്ഷാ മാനദണ്ഡം ഉറപ്പാക്കുന്നതിന് മാസ്കിന്റെ ഉപയോഗം സാമൂഹിക അകലം വൃക്തി ശുചിത്വം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിന് പ്രചാരണം തീരുമാനിച്ചു

മരണ നിരക്ക് കുറയ്ക്കാൻ പരമാവധി ആരോഗ്യ സുരക്ഷാ സംവിധാന്റ് ഒരുക്കണമെന്ന് പ്രധാനമന്ത്രി യോഗത്തിൽ ആവശ്യഉപ്പ്ടു കോവിഡ് വർധനയുടെ പശ്ചത്താലത്തിൽ മഹാരാഷ്ട്ര പഞ്ചാബ് ഛത്തീസ്ഗഡ് എന്നിവിടങ്ങിലേക്ക് കേന്ദ്രം വിദഗ്ധ സംഘത്തെ അയക്കും

പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും ചടങ്ങുകളും നടന്നു കാൽവരിയിൽ കുരിശിലേറ്റപ്പെട്ട ക്രിസ്തുദേവന്റെ പുനരുത്ഥാന ദിനത്തെക്കുറിച്ച് കൊല്ലം മണ്ണൂർ മർത്തശ് മൂനി ഓർത്തഡോക്സ് ചർച്ച് വികാരി ഫാദർ ഷിനോ കെ തോമസ് ആകാശവാണിയോട്

കോഴിക്കോട് നോർത്ത് സൌത്ത് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾക്കൊപ്പമാണ് രാഹുൽ ഗാന്ധി റോഡ്ഷോ നടത്തിയത് പിന്നീട് തിരുവനന്തപുരത്ത് പ്രനേമം മണ്ഡലത്തിലെ പ്രചാരണ പരിപാടിയിലും അദ്ദേഹ്റൽ പങ്കെടുത്തു നോട്ട് നിരോധനത്തിനെതിരെയും ജി

കോൺഗ്രസിനെ ഇല്ലാത്ത്ക്കുക എന്നത് മാത്രമാണ് ബി ജെ പി യുടെ ലക്ഷ്യമെന്നും രാക്കു്ൽഗാന്ധി പറഞ്ഞു

ആകാശവാണി ഇടുക്കി പ്രതിനിധി ആന്റണി മുനിയറയുടെ റിപ്പോർട്ടിലേക്ക്

ഓട്ടോ ഡ്രൈവർ കലയ്ക്കോട് വെളിയം സ്വദേശി നാസർ വെളിയം തോട്ടത്തിൽ വീട്ടിൽ ഗ്രീഷ്മ എന്നിവരാണ് മരിച്ചത്

ഈ ആഘോഷങ്ങളുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്ര മോദി കൊളുത്തിയ വിജയ ദീപം കൊച്ചിയിൽ നിന്നും ലക്ഷദീപ് സമൂഹത്തിലേക്ക് എത്തുന്നതാണ്

എസ് സുജാതയിൽ കൊച്ചിയിൽ നിന്ന് പുറപ്പെടും മറ്റെന്നാൾ മിനിക്കോയ് ദ്വീപിൽ എത്തിച്ചേരും

ഒരു ജവാനെ ഇനിയും കണ്ടെത്തിയിട്ടില്ല

ബസ്താർ ഡിവിഷനിൽ സുഖ്മാ ബിജാപൂർ ജില്ലാതിർത്തിക്ക് സമീപം സേന തിരച്ചിൽ തുടരുകയാട്ണ്

മരിച്ച ജവാൻമാരിൽ നിന്നും മാവോയിസ്റ്റുകൾ ആയുധങ്ങൾ കൈക്കലാക്കിയതായി പോലീസ് അറിയിച്ചു നിരവധി മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട് വനിത ഉൾപ്പെടെ രണ്ടുപേരുടെ മൃതദേഹം കണ്ടെത്തി

വനിതകൾ പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾ എന്നീപ്പൂരുൾപ്പെടെയുള്ളവർക്ക് സംരംഭം തുടങ്ങുന്നതിന് ബാങ്കുക്ക്ളീൽ നിന്നും എളുപ്പത്തിൽ വായ്പ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടാളിന് പ്പദ്ധതി

വനിതാ ഡബിൾസിൽ ജാപ്പനിസ് ജോഡി എനാ ഷിബാ ഹാരെയും ഷുക്കോ അയോമയും ബ്രസീലിയൻ അമേരിക്കൻ ടീമായ ലൂയിസാ സ്റ്റെഫാനിയയെയും ഹെയ്ലി കാർട്ടറെയും നേരിടും